കോവിഡ് പരിശോധന്കളുടെ എണ്ണം രാജ്യത്ത് ഒരു കോടി കവിഞ്ഞതായി ട്ര്കേന്ദ്ര ആരോഗൃമന്ത്രാലയം

കേരളത്തിൽ ഉറവിടം അറിയാത്ത കോവിഡ് ബാധിതർ വർദ്ധിച്ച തിരുവനന്തപുരം ഉൾപ്പെടെയുളള നഗരങ്ങളിൽ കർശ്ശന ജാഗ്രത തുടരുന്നു

ക്ലാസുകൾ പൂർണ്ണമായും ഓൺലൈനിലേക്ക് മാറിയാൽ വിദേശ വിദ്യാർത്ഥികളെ രാജ്യത്ത് തുടരാൻ അനുവദിക്കില്ലെന്ന് അമേരിക്ക

അതിനിടെ രാജ്യത്തെ കോവിഡ് പ്രിശോധനകളുടെ എണ്ണം ഇന്നലെ ഒരു കോടി പിന്നിട്ടു

പ്രധാന മന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വം കൊണ്ട് ഇക്കാര്യത്തിൽ രാജ്യത്തെ മുന്നിലെത്തിക്കാൻ കഴിഞ്ഞതായും അദ്ദേഹം പറഞ്ഞു

കോവിഡിനെ തുടർന്ന് ഉഭയകക്ഷി വെർച്ചൽ ഉച്ചകോടി നയതന്ത്ര തലത്തിൽ മികച്ച സംവിധാനമായി മാറിക്കഴിഞ്ഞു

ഡിജിറ്റൽ നയതന്ത്രത്തിന് ഇപ്പോൾ വളരെ പ്രാധാന്യം ലഭിച്ചിട്ടുണ്ടെന്ന് വിദേശകാര്യ സെക്രട്ടറി പറഞ്ഞു

ഇത് സംബന്ധിച്ച് യു ജി സിയും മാർഗ്ഗ നിർദ്ദേശം പുറപ്പെടുവിച്ചു

അടച്ചിടലിൽ പ്രഖ്യാപിച്ച ഇളവിന്റെ ഭാഗമായി സർവകലാശാലകൾക്കും സ്ഥാപനങ്ങൾക്കും പരീക്ഷ നടത്താൻ നിർദ്ദേശിച്ച് മന്ത്രാലയം കേന്ദ്ര ഉന്നത വിദ്യാഭ്യാസ സെക്രട്ടറിക്ക് കത്ത് നൽകി യു ജി സി മാർഗ്ഗു നിർദ്ദേശ പ്രകാരവും വിദ്യാഭ്യാസ കലണ്ടറും അനുസരിച്ച് അവസാനപാദ പരീക്ഷകൾ കൃത്യമായും നടത്തണമെന്നാണ് നിർദ്ദേശം കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം പുറപ്പെടുവിച്ചിട്ടുള്ള കോവിഡ് പ്രോട്ടോക്കോൾ നിർബന്ധമായും പാലിച്ചായിരിക്കണം പരീക്ഷ നടത്തിപ്പെന്നും കത്തിൽ നിർദ്ദേശിച്ചിട്ടുണ്ട്

നേരിട്ടോ ഓൺലൈനായോ പരീക്ഷ നടത്താവുന്നതാണ്

കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയമാണ് ഇതിനുള്ള തീരുമാനമെടുത്തത്

നിയന്ത്രണങ്ങളിൽ ഇളവ് നല്കിയിട്ടുണ്ടെങ്കിലും സ്ഥിതി ഇനിയും മെച്ചപ്പെടുമെന്ന് അദ്ദേഹം പറഞ്ഞു

കഴിഞ്ഞ ദിവസം നടന്ന രണ്ട് മരണങ്ങൾ കോവിഡ് മൂലമാണെന്നും മുഖ്യമന്ത്രി അറിയിച്ചു

കോവിഡ് രോഗവ്യാപനം തടയ്യുന്നതിനായി ഏർപ്പെടുത്തിയ ട്രിപ്പിൾ ലോക്ക്ഡൌണ്ണീൽ ് ഇളവുകൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്

കണ്ടെയ്ൻമെന്റ് സോണുകളും നിയന്ത്രണങ്ങളും കൂടുതൽ നിലവിൽ വന്നതോടെ കർശന നടപടികളുമായി പോലീസും ആരോഗ്യ വകുപ്പും സജീവമാണ്

ഓൺലൈൻ വിദ്യാഭ്യാസം നൽകുന്നത് സ്ഥാപനങ്ങളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് യുക്ക്ക് ക്ലിസ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് വിസ അനുവദിക്കില്ലെന്ന് സ്റ്റുഡന്റ് എക്സ്ചേഞ്ച് വിസിറ്റർ പ്രോഗ്രാം വിഭാഗം അറിയിച്ചു

ഇവരെല്ലാം തന്നെ യാത്രാ പശ്ചാത്തലമുള്ളവരാണ്

മീർ മുഹമ്മദിന് മുഖ്യമന്ത്രിയുടെ സെക്രട്ടറിയുടെ അധിക ചുമതല നൽകി സംസ്ഥാന ഐ ടി സെക്രട്ടറിയായി ശിവശങ്കർ തുടരും

കേസ് സി ബി ഐ ക്ക് വിടാൻ മുഖ്യമന്ത്രി തയ്യാറാവണമെന്ന് പ്രതിപക്ഷ നേതാവ് ആവശ്യപ്പെട്ടു

ശിവശങ്കറെ മാറ്റിയതോടെ ബിജെപിയുടെ വാദഗതികൾ ശരിയാണെന്ന് തെളിഞ്ഞതായി പാർട്ടി സംസ്ഥാന അദ്ധ്യക്ഷൻ കെ

ടി സെക്രട്ടറി സ്ഥാനത്തു നിന്ന് ശിവശങ്കറെ മാറ്റാതിരുന്നതെന്നും ശ്രീ സുരേന്ദ്രൻ മാധ്യമങ്ങളോട് പറഞ്ഞു

ഇന്നലെ ചേർന്ന ഉന്നതതല യോഗത്തിൽ ലഫ്റ്റനന്റ് ഗവർണർ ഇക്കാരൃം നിർദ്ദേശിച്ചതായി അദ്ദേഹ്യാപ്പ ടിറ്ററിൽ കുറിച്ചു

സംസ്ഥാനങ്ങളുടെ അഭിപ്രായം കൂടി പരിഗണിച്ചാണ് ആവശ്യമായ രാസവള ഉല്പാദനം നടത്തിയതെന്ന് അദ്ദേഹം വ്യക്തമാക്കി

കോവിഡ് മൂലം പ്രതിസന്ധിയിലായ സൂക്ഷ്മ ചെറുകിട ഇടത്തരം സംരംഭങ്ങൾക്ക് പിന്തുണ നൽകാനാണ് തുക